വി രമണ ഇന്ന് ചുമതലയേൽക്കും ഐ

സംസ്ഥാനത്ത് ഗൌരവതരമായ സ്ഥിതി രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്

അതിന് ശേഷം ഏതൊക്കെ നിയന്ത്രണങ്ങൾ വേണമെന്ന് മറ്റന്നാൾ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും

ദേദ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇന്നും നാളെയും അവശ്യസാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഒഴിച്ച് മറ്റു മുഴുവൻ കടകളും അടക്കണമെന്നാണ് ഗവൺമെന്റ് നിർദേശിച്ചിരിക്കുന്നത് അത്യാവശ്യത്തിനല്ലാതെ ആളുകൾ പുറത്തിറങ്ങരുതെന്നും അത്യാവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നവർ സത്യവാങ്മൂലം കൈയിൽ കരുതണമെന്നും നിർദേശമുണ്ട് ഇന്നത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മാറ്റമില്ല കുട്ടികളെ സ്കൂളിൽ വിട്ടശേഷം രക്ഷിതാക്കൾ മടങ്ങണം പരീക്ഷ അവസാനിച്ച ശേഷമെത്തി വിളിക്കാവുന്നതാണ്

ഈ ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തിനുവേണ്ടി നമുക്ക് മാറ്റിവെയക്കാമെന്നും അനാവശ്യമായ യാത്രകളും പരിപാടികളുമൊക്കെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ്ഡസ്ക് ആകാശവാണി ദേദ കോവിഡിന്റെ രണ്ടാം തരംഗത്തെ അതിജീവിക്കാൻ നടത്തിയ ഒരുക്കങ്ങളും ഇടപെടലുകളും നമ്മുടെ ആവശ്യങ്ങളും പ്രധാനമന്ത്രിയുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിൽ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു താങ്ങാവുന്ന വിലയ്ക്ക് വാക്സിൻ ലഭിക്കാതിരിക്കുന്നത് കോവിഡിനെ അതിജീവിക്കുകയെന്ന ലക്ഷ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്താമെന്ന കാര്യവും യോഗത്തിൽ അറിയിച്ചു

വാക്സിൻ സൌജന്യമായി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദ്ദേ വാക്സിൻ വാങ്ങുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ മാത്രം ഒരുകോടിയിലധികം രൂപ ലഭിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു വാക്സിൻ നൽകുന്നതിനായി ജനങ്ങൾ നൽകുന്ന തുക സംഭരിക്കുന്നതിന് ദുരിതാശ്വാസ നിധിക്ക് പ്രത്യേക അക്കൌണ്ട് ഉണ്ടാക്കുമെന്നും ആ തുക വാക്സിനേഷനുവേണ്ടി മാത്രം ചെലവഴിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേദ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇന്നലെയും കുതിച്ചുയർന്നു

ഇടുക്കിയിലും വയനാട്ടിലും എണ്ണൂറിലധികം പേർക്കാണ് രോഗബാധ

ദ്ദേ കോട്ടയം ജില്ലയിൽ കോവിഡ് രോഗികളെ പരിചരിക്കുന്നതായി കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാൻ ജില്ലാ കലക്ടർ എം

ബ്ലോക്ക് മുനിസിപ്പൽ തലങ്ങളിൽ കോവിഡ് ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും പഞ്ചായത്തു തലത്തിൽ ഡൊമിസിലിയറി കെയർ സെന്ററുകളും സജ്ജമാക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി ദേദ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ആദിവാസി മേഖലകളിൽ ഓൺലൈൻ രജിസ്ട്രേഷന് പ്രത്യേക സംവിധാനമൊരുക്കി വാക്സിനേഷൻ ഊർജിതമാക്കുമെന്ന് ജില്ലാ കലക്ടർ ബി

യു വെന്റിലേറ്ററുകളും വർദ്ധിപ്പിക്കണമെന്നും കലക്ടർ നിർദേശിച്ചു ദര ഇടുക്കി ജില്ലയിൽ സർവീസ് നടത്തുന്ന ദീർഘദൂര സർവീസ് ഒഴികെ സ്വകാര്യ ബസ്സുകൾ നാളെ സർവീസ് നിർത്തി വെയ്ക്കണമെന്ന് റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു

ഇന്നലെ അർദ്ധരാത്രി മുതൽ ഏഴുദിവസത്തേക്കാണ് നിരോധനാജ്ഞ ദേദ വയനാട് ജില്ലയിൽ കോവിഡ് സമ്പർക്ക വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ രോഗികളുമായി സമ്പർക്കത്തിൽ വരുന്നവർ കർശനമായും സ്വയം സമ്പർക്ക വിലക്കിൽ പോകണമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള നിർദ്ദേശിച്ചു

ഹയർ സെക്കണ്ടറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് യഥാ സമയം പരീക്ഷാ സെന്ററുകളിൽ എത്തുന്നതിനും എയർപോർട്ട് റെയിൽവെ സ്റ്റേഷൻ ആശുപത്രികൾ എന്നിവിടങ്ങിൽ എത്തുന്ന യാത്രക്കാർക്കും വേണ്ടിയുള്ള സർവ്വീസുകൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ദേദ കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ഓക്സിജൻ സംഭരണികൾ അവശ്യ മരുന്നുകൾ മറ്റു വൈദ്യ ഉപകരണങ്ങൾ തുടങ്ങിയവ വ്യോമസേന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു തുടങ്ങി വ്യോമസേനയുടെ ചരക്ക് വിമാനങ്ങളുടെ സേവനമാണ് ഇതിനായി ലഭ്യമാക്കിയിരിക്കുന്നത് ഡൽഹിയിലെ വിവിധ ആശുപത്രികളിലേക്ക് കൊച്ചി മുംബൈ വിശാഖപട്ടണം ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് ഡോക്ടർമാർ നഴ്സുമാർ എന്നിവരെയും വ്യോമമാർഗം വ്യോമസേന എത്തിച്ചുകഴിഞ്ഞു

വി രമണ ഇന്ന് ചുമതലയേൽക്കും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ഇന്നലെ വിരമിച്ച ഒഴിവിലാണ് ജസ്റ്റിസ് രമണ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസാവുന്നത്

എൽ ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസിനെ പഞ്ചാബ് കിംഗ്സ് ഒൻപത് വിക്കറ്റിന് തോൽപ്പിച്ചു

ദേദ തൃശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗം മഠത്തിൽ വരവിന്റെ മേളത്തിനിടയിൽ ആൽമരക്കൊമ്പ് അടർന്നു വീണ് രണ്ടുപേർ മരിച്ചു തിരുവമ്പാടി മാനേജിംഗ് കമ്മിറ്റി അംഗം പനിയത്ത് രാധാകൃഷ്ണൻ ആഘോഷ കമ്മിറ്റി അംഗം രമേശ് എന്നിവരാണ് മരിച്ചത് രാത്രി പന്ത്രണ്ടോടെ ബ്രഹ്മസ്വം മഠത്തിന് സമീപമാണ് മരക്കൊമ്പ് വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണത്

നിരവധി പൊലീസുകാർക്കും പരിക്കുണ്ട് മരം വീണതിനെ തുടർന്ന് വിരണ്ടോടിയ കുട്ടൻകുളങ്ങര അർജ്ജുനൻ എന്ന ആനയെ പിന്നീട് തളച്ചു സംഭവത്തെ തുടർന്ന് പൂരാഘോഷത്തിന്റെ ഭാഗമായ പ്രധാന വെടിക്കെട്ട് ഉപേക്ഷിച്ച് ഇരു ദേവസ്വങ്ങളും വെടിക്കോപ്പുകൾ പുലർച്ചെ കത്തിച്ചു കളഞ്ഞു ദര വാക്സീൻ വിതരണത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധിതമാക്കിയതോടെ സംസ്ഥാനത്ത് വാക്സീൻ വിതരണത്തിലെ തിരക്ക് കുറഞ്ഞ് സാധാരണ സ്ഥിതിയിലേക്കെത്തുന്നു വ്യാഴാഴ്ച മുതൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് വാക്സീൻ നൽകുന്നത് ദേദ കൊവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിൽ കൊവിഡ് പരിശോധന കർശനമാക്കുന്നു ജയിലുകളിൽ തടവുകാർക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം കാര്യമായ സമ്പർക്കമില്ലാത്ത തടവുകാരിൽ ചിലർക്കും രോഗം കണ്ടെത്തിയതോടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചു

ദേദ കോവിഡ് വ്യാപനത്തെത്തുടർന്ന് ഇന്ത്യയിൽനിന്ന് വിമാനങ്ങൾക്ക് യു എ ഇ വിലക്കേർപ്പെടുത്തിയതോടെ ഇന്ന് അർധരാത്രി മുതൽ പത്ത് ദിവസത്തേക്ക് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽനിന്ന് വിദേശ സർവീസുകളുണ്ടാകില്ല അതേസമയം യു എ ഇ യിൽനിന്ന് ഇന്ത്യയിലേക്ക് വിമാനങ്ങൾക്ക് വിലക്കില്ലാത്തതിനാൽ കണ്ണൂരിലേക്ക് സർവീസുകളുണ്ടാകും മസ്കറ്റ് സർവീസുകളും ഇന്ന് മുതൽ നിർത്തും ദോഹ സർവീസുകൾക്ക് നിലവിൽ നിരോധനമില്ല ദ്ദേ ആരോഗ്യശാസ്ത്ര സർവകലാശാല മെയ് മൂന്നു മുതൽ നടത്താൻ വിജ്ഞാപനം ചെയ്ത പരീക്ഷകളിൽ മാറ്റമില്ലെന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചു

പൊതു സ്ഥലങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പു വരുത്തുന്നതിനും നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും പ്രത്യേക സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന ദര ബേക്കിംഗ് സോഡയിൽ ചെറുനാരങ്ങ കലർത്തി ഉപയോഗിച്ചാൽ കോവിഡ് ഭേദമാകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തയ്ക്ക് ശാസ്ത്രീയ തെളിവുകളില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി ഇത്തരം വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകരുതെന്ന് പി

ദ്ദേ ഇടുക്കി ജില്ലയിൽ വയോധികരായ ആദിവാസി ദമ്പതികൾ കോവിഡ് പ്രതിരോധ വാക്സിനെടുത്ത് മാതൃകയായി